ഹോട്സ്പോട്ട് അല്ലാത്തയിടങ്ങളിൽ ഇന്നുമുതൽ ചില മേഖലകൾക്ക് ഇളവ്

ഹോട്ട്സ്പോട്ടുകളല്ലാരുത്ത് മേഖലകളിൽ ഗവൺമെന്റ് ലോക്ഡൌൺ മാനദണ്ഡങ്ങളിൽ ചില ഇളവ് വരുത്തിയിട്ടുണ്ട്

ഒഡീഷ കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ് ദ് രോഗബാധിതരുടെ എണ്ണം ഇരട്ടിക്കുന്നതിന്റെ നിരക്ക് പ് ദ് ദ് ദ് ദ് ദിവസത്തിലേറെയാണണെന്നും മന്ത്രാലയം അറിയിച്ചു

മെയ് മൂന്നു വരെ ലോക്ഡൌൺ നീട്ടിയതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് നേരത്തെ സർക്കാർ ഉത്തരവിട്ടിരുന്നു എന്നാൽ രാജ്യത്തെ കർഷകരുടെയും കുറഞ്ഞ വേതനക്കാരുടെയും സാമ്പത്തികനില പരിഗണണിച്ചാണ് ഇന്നലെ മുതൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതെന്ന് കേന്ദ്രം വൃക്തമാക്കി മത്സ്യകൃഷി മേഖല മത്സ്യം മത്സ്യ ഉത്പന്നങ്ങൾ എന്നിവയുടെ ചരക്ക് നീക്കം കൽക്കരി ഉത്പാദനം ഖനികളുടെ പ്രവർത്തനം ഐ

പരമാവധി പകുതി ജീവനക്കാരുമായി ഐ ടി സേവനങ്ങൾക്ക് പ്രവർത്തനം പുനരാരംഭിക്കാവുന്നതാണ് എല്ലാത്തരം കൃഷി പ്രവർത്തനങ്ങൾ കൃഷി ഉത്പന്നങ്ങളുടെ വിപണനം എ

സി യുടെ കീഴിലുള്ള വിപണികളുടെ പ്രവർത്തനം കൃഷി ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്കും പ്രവർത്തിക്കാവുന്നതാണ്

ഇല്ക്ട്രീഷൻമാർ മെക്കാനിക്കുകൾ തടിപ്പണി ചെയ്യുന്നവർ എന്നിവർക്കും ഇളവുണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ സർക്കാരുകൾക്ക് ഈ ഇളവുകൾ നൽകാവുന്നതാണ്

ദുരന്ത നിവാരണ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാനങ്ങളുമായും ഭരണപ്രദേശങ്ങളുമായും കേന്ദ്ര നിരന്തരം ബന്ധപ്പെട്ടുവരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ലോക്ഡൌൺ നിബന്ധനകൾ ലഘൂകരിച്ചതിൽ ഉത്കണ്ഠ അറിയിച്ച് കേരള സർക്കാരിന് കത്തയച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ആറ് ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിരോധ നടപടികളിൽ സംസ്ഥാനങ്ങൾക്ക് ടീമുകൾ സഹായം എത്തിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

കണ്ണൂർ ജില്ലയിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ കർക്കശമായി നടപ്പാക്കാനൊരുങ്ങുകയാണ് ഇന്നുമുതൽ ജില്ല വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ

ഇളവുകൾ പ്ര പ്രഖ്യാപിച്ചതോടെ വാഹനങ്ങൾ ധാരാളമായി നിരത്തിലിർങ്ങുന്നത് ആശ്വാസ്യമായ കാര്യമല്ല

ബാർബർ ഷോപ്പുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് റെഡ് സോൺ ജില്ലകളിൽ ആവശ്യമായ ജീവനക്കാർ മാത്രം ഹാജരാകുന്ന രീതിയിൽ ്പുനഃക്രമീകരിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടും

പ്ലാസ്മാ തെറാപ്പിയുടെ ട്രയൽ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്

ആർ പരിശോധനാ ലബോറട്ടറി മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും